രോഗ സ്ഥിരീകരണ നിരക്ക് കൂടിയ്ട്ര പ്രദേശങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കൂടുതൽ ്ജാ്ഗതയോടെ ഇടപെടണമെന്ന് മുഖ്യമന്ത്രി പീണ്റായി വിജയൻ വാർഡ്തല സമിതികൾ എല്ലായിടത്തും സജീവമാകണം ആംബുലൻസ് പൂക്ക്ര്മുള്ള വാഹനങ്ങൾ അവശ്യമരുന്നുകീൾ പൾസ് ഓക്സീമീറ്റർ എന്നിവ വാർഡുതല സമിതികൾ ഉറപ്പുവരുത്തണ്മെന്നും നിർദ്ദേശം ലോക്ഡൌണിനെ തുടർന്ന് അടിയന്തര യാത്രകൾക്കായി പോലീസ് ഏർപ്പെടുത്തിയ യാത്രാ പാസ് സംവിധാനം നിലവിൽ വന്നു അവശ്യസേവന വിഭാഗത്തിൽപ്പെട്ടവർക്ക് പാസ് ആവശ്യമില്ല കോവിഡ് രോഗലക്ഷണങ്ങൾ ഉള്ളവരെ ചികിത്സാ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കുന്നതിന് പരിശോധനാഫലം നിർബന്ധമല്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം

എറണാകുളം തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്

ചില തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിക്കിയിൽ ചികിത്സാ സൌകര്യങ്ങ ളിൽ കുറവ് കാണുന്നതായും ഇത് അടിയന്തരമായി പരിഹരിക്കണ മെന്നും മുഖ്യമന്ത്രി തദ്ദേശ സ്ഥാ്പീനുങ്ങളിലെ ജനപ്രതിനിധികളുമായി ഇന്നു നടത്തിയ ചർച്ചയിൽ നിർദ്ദേശിച്ചു

അവശ്യമരുന്ന് ഉറപ്പുവരുത്തുകയും കിട്ടാത്ത മരുന്നുകൾ മറ്റിടങ്ങളിൽ നിന്ന് എത്തിക്കുകയും വേണം മെഡിക്കൽ ഉപകരണങ്ങളുടെ ലഭ്യതയും ആരോഗ്യപ്രവർത്തകരുടെ പട്ടികയും വാർഡ്തല സമിതികൾ തയ്യാറാക്കണം പൾസ് ഓക്സീ മീറ്റർ മുമ്പ് ഉപയോഗിച്ചവരിൽ നിന്നും ശേഖരിച്ച് ഇവയുടെ പൂൾ തയ്യാറാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു പൊലീസ് പാസ് ലോക്ഡൌണിനെ തുടർന്ന് അടിയന്തര യാത്രകൾക്കായി പൊലീസ് ഏർപ്പെടുത്തിയ യാത്രാ പാസ് സംവിധാനം നിലവിൽ വന്നു

വീട്ടുജോലിക്കാർ തൊഴിലാളികൾ എന്നിവർക്കും ഇവരുടെ തൊഴിൽ ദാതാക്കൾക്കും പാസിനായി അപേക്ഷിക്കാ വുന്നതാണ്

വാക്സിനേഷൻ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരും അവശ്യ സാധനങ്ങൾ വാങ്ങാൻ തൊട്ടടുത്ത കടകളിലേക്ക് പോകുന്നവരും സത്യവാങ്മൂലം നൽകിയാൽ മതിയാകും ഇതിന്റെ മാതൃക വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇത്തേ മാതൃകയിൽ വെള്ള പേപ്പറിൽ സത്യവാങ്മൂലം തയ്യാറാക്കിയിലും മതിയാകും

പണമിടപാട് കോവിഡ് ചികിത്സയ്ക്കായി രോഗികൾക്ക് ആശുപത്രികളിലും ചികിത്സാ കേന്ദ്രങ്ങളിലും രണ്ട് ലക്ഷം രൂപ വരെ പണമിടപാട് നടത്താൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി ഇതിനായി ആദായ നികുതി നിയമത്തിൽ കേന്ദ്രം ഇളവു വരുത്തിയിട്ടുണ്ട് ഇത്തരം പണമിടപാടുകൾക്കായി ആധാർ പാൻ നമ്പർ എന്നിവ നൽകണം

രാവിലെ മുതൽ തന്നെ പ്രധാന കേന്ദ്രങ്ങളിലും നഗരാതിർത്തി കളിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി യിട്ടുണ്ട്

പൊതുജനങ്ങൾ ലോക്ക് ഡൌണിനോട് പരമാവധി സഹകരിക്കുന്നതായാണ് റിപ്പോർട്ട്

പോലീസ് സ്റ്റേഷൻ പരിധി നിർണയിച്ചാണ് ഇവർക്ക് ചുമതല നൽകിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു

എസ് ആർ ടി

സി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഓക്സിജൻ ക്ഷാമം മൂലം ശസ്ത്രക്രിയകൾ ്മാറ്റിവെച്ചതായി റിപ്പോർട്ട്

മരണം കോവിഡ് ബാധിച്ച് തദ്ദേശ് സ്ഥാപനങ്ങളിലെ രണ്ട് ജനപ്രതിനിധികൾ സംസ്ഥാനത്ത് മരണമടഞ്ഞു കൊച്ചി കോർപ്പറേഷൻ കൌൺസിലർ കെ

ശിവനും ഇരിങ്ങാലക്കുട നഗരസഭാ കൌൺസിലർ ജോസ് ചക്കോളയുമാണ് മരണമടഞ്ഞത് ഇരുവരും ആശുപത്രികളിൽ ചികിത്സയിൽ ആയിരുന്നു

തമിഴ്നാട്ടിൽ ജില്ലാ അതിർത്തികൾ അടയ്ക്കാനും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും റെയിൽ വിമാന മാർഗ്ഗങ്ങളിൽ വരുന്നവർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കാനുമാണ് നിർദ്ദേശം

നിയുക്ത എം

എ മാരായ ആന്റണി രാജുവും ജി